വോട്ടർപട്ടികയുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് തിങ്കളാഴ്ച രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേരുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ

ആയുധ മോഷണ കേസിൽ മണിപ്പൂരിലെ കോൺഗ്രസ്സ് എം

എ യംതോങ് ഹവ്യോക്കിപ്പ് കുക്കി റെവല്യൂഷണറി ആർമി ചെയ്ർമാൻ ഡേവിഡ് ഹാങ്ഷിങ് എന്നിവരെ എൻ

ദുരിതക്കെടുതികളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഇന്ന് തിരുവോണം

ഏഷ്യൻ ഗെയിംസിന്റെ അത്ലറ്റിക്സ് മത്സരങ്ങൾക്ക് തുടക്കമായി ട്രാക്കിൽ ഇന്ന് നാല് ഫൈനലുകൾ

തിങ്കളാഴ്ച ഡൽഹിയിലാണ് യോഗം വോട്ടർ പട്ടികയുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും വോട്ടർപട്ടികയിലെ ക്രമക്കേടുകൾ ഇല്ലാതാക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം തേടിയിരുന്നു

എ യംതോങ് ഹവോക്കിപ്പ് ദേശവിരുദ്ധ സംഘടനയായ കുക്കി റെവല്യൂഷണറി ആർമി ചെയർമാൻ ഡേവിഡ് ഹാങ്ഷിങ് എന്നിവരെ ദേശീയ അന്വേഷണ ഏജൻസി ഇംഫാല്പിൽ അറസ്റ്റ് ചെയ്തു

രാജ്യത്തിനെതിരെ യുദ്ധത്തിന് ശ്രമിക്കുകയും ജനാധിപതൃം അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്തതാണ് ഡേവിഡ് ഹാങ്ഷിങിനെതിരായ കേസ് പതിനാല് ആയുധങ്ങൾ ഇതുവരെ കണ്ടെടുത്തിട്ടുണ്ട്

ഡയറക്ടർ ജനറൽ ആർ

നക്സലിസം അമർച്ച ചെയ്യുന്നതിൽ സേന മികച്ച മുന്നേറ്റമാണ് നേടിയത് നക്സലുകൾക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന മേഖലകളിൽ വൻതോതിൽ തിരിച്ചടി നൽകാൻ കഴിഞ്ഞു ഇതുവഴി ദുരിതം അനുഭവിച്ചിരുന്ന ജനങ്ങളിലേക്ക് സി

ജമ്മു കാശ്മീർ പോലീസുമായും സേനയുമായും മറ്റ് ഏജൻസികളുമായും സി

ഇപ്പോൾ കശ്മീരിലെ ക്രമസമാധാന നില തൃപ്തികരമാണെന്നും അദ്ദേഹം പറഞ്ഞു

ഇന്നലെ ന്യൂഡൽഹിയിൽ വാണിജ്യ വ്യവസായ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി രജനീഷും സ്പിംഗ്പ്പൂർ ഗവൺമെന്റിന്റെ വാണിജ്യ വൃവസായ മന്ത്രാലയം സിനിയർ ഡിയറക്ടർ ഫ്രാൻസിസ് ചോംങുമാണ് രണ്ടാം പ്രോട്ടോക്കോളിൽ ഒപ്പു വച്ചത് നികുതയിളവുകൾ വിസ്തൃതമാക്കുക ഉത്പ്പന്നങ്ങളുടെ ഉറവിടവുമായിബന്ധപ്പെട്ട നിയമങ്ങൾ ഉദാരമാക്കുക് ഉത്പന്ന സവിശേഷ നിയമങ്ങൾ യുക്തിസഹമാക്കുക എന്നിവ ഉൾപ്പെടെയുളള കാര്യങ്ങൾ ഇരു രാജ്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ട്

റിപ്പോർട്ട് ഇന്നലെ പാർലമെന്റ് ഒന്നടങ്കം നിരസിച്ച പശ്ചാത്തലത്തിലാണ് പുനപരിശോധനയ്ക്കായി സമിതിയെ നിയോഗിക്കാൻ സ്പീക്കർ തീരുമാനിച്ചത് പ്രധാനമന്ത്രി റെനിൻ വിക്രമസിംഗെയുടെ അധ്യക്ഷതയിലുള്ള അഞ്ചംഗ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിച്ച് മാറ്റങ്ങൾ വരുത്തിയശേഷം മണ്ഡല പുനർനിർണയം സംബന്ധിച്ച് പ്രസിഡന്റ് മൈത്രിപാല സിരിസേന വിജ്ഞാപനമിറക്കും ഒരു കാരണവശാലും പ്രാദേശിക കൌൺസിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവയ്ക്കില്ലെന്നും നിശ്ചയിച്ച സമയത്തിനുള്ളിൽ തന്നെ നടത്തുമെന്നും സ്പീക്കറുടെ ഓഫീസ് അറിയിച്ചു

ഇന്ത്യയുടെയും ലോകത്തിന്റെയും പുരോഗതിക്കായി നിസ്വാർത്ഥമായി പ്രവർത്തിച്ച നേതാവാണ് അദ്ദേഹമെന്നും അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു

പെറു ഇസ്രായേൽ നൈജീരിയ പാലസ്തീൻ സ്വിറ്റ്സർലാന്റ് പാകിസ്ഥാൻ ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികളും വാജ്പെയുടെ മരണത്തിൽ അനുശ്ശോചിന് ്രേഖപ്പെടുത്തി

നിയന്ത്രണ രേഖയ്ക്ക് സമീപം സൈനിക സംഘം റോന്തുചുറ്റുന്നതിനിടെയാണ് മൈൻ പൊട്ടിത്തെറിച്ചത്

നൂറ്റാണ്ടുകളായി അത്യാഹ്ളാദപൂർവ്വം ആഘോഷിച്ചുപോന്ന നന്മയുടെയും സമൃദ്ധിയുടേയും പൂത്തിരിവോണം വറുതിയുടേയും തേങ്ങലുകളുടേയും ഇടയിൽ വന്നെത്തിയത് വിധിവൈപരീത്യം ദുരന്തക്കെടുതിയിൽ പെട്ടുഴലുന്ന കേരളത്തിലെ ഈ ഓണനാളുകൾ ആഹ്ളാദ ആരവങ്ങളില്ലാതെ കടന്നൂപോവുകയാണ്

തിരുവോണ നാളുകളിൽ ഓണത്തപ്പനെ വരവേൽക്കുന്നതിന്റെ ആദ്യപടിയായ ക്ഷേത്രദർശന ചടങ്ങുകൾ വെറും ചടങ്ങുകളായി മാറി ചരിത്രത്തിലാദ്യമായി തിരുവോണനാളിൽ ശബരിമലയിൽ ഭക്തർ എത്തിയില്ല ഗുരവായൂർ ഉൾപ്പെടെയുള്ള മറ്റ് പ്രധാനക്ഷേത്രങ്ങളിലും ഇത്തവണ ഭക്തരുടെ അഭൂതപൂർവ്വമായ തിരക്കും ഉണ്ടായിരുന്നില്ല മഹാബലി ദർശിച്ച ഒത്തൊരുമയുടെയും പരസ്പര സഹകരണത്തിന്റെയും സേവനമനോഭാവത്തിന്റെയും ഓണമാണ് ഇക്കൊല്ലം മലയാളി കണ്ടത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നടക്കുന്ന തിരവോണ സദ്യ വേറിട്ട കാഴ്ചയായി മാറുന്നു ജാതിമത ഭേദമന്യേ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നടക്കുന്ന സമൂഹ ഓണസദ്യ ഒരു പുതിയ തിരിച്ചറിവിന്റെ പാഠം കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു

പ്രളയക്കെടുതി മൂലം ബൂഭ്ധിമുട്ടുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ഓണം കരുത്ത് പകരട്ടേയെന്ന് അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു ഈ സാഹചര്യത്തിൽ രാജ്യം മുഴുവൻ കേരളത്തിന്റെ കൂടെ നിൽക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

സൌരവ് ഗോഷൽ ദീപികാ പള്ളിക്കൽ ജോഷ്ന ചിന്നപ്പ എന്നിവർ ഇന്ന് സെമിഫൈനൽ കളിക്കും ബാഡ്മിന്റണിൽ പി

സിന്ധുവും സൈന നെഹ്വാളും ഇന്ന് രണ്ടാം റൌണ്ട് മത്സരങ്ങൾക്ക് ഇറങ്ങുന്നുണ്ട്

പ്രതിരോധ മേഖലയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൽകുന്ന സി എസ് ആർ

കൊടകിൽ ദുരിതാശ്വാസ കൃാമ്പുകൾ സന്ദർശിച്ച ശേഷം മടക്കേരിയിൽ അവർ മാധ്യമങ്ങളെ അറിയിച്ചതാണ് ഇക്കാര്യം കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാംഗമായ ശ്രീമതി നിർമ്മലാ സീതാരാമൻ പാർലമെന്റ് അംഗങ്ങളൂടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ്യൂർ ്കൊടകിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ് അതിനിടെ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഭയന്ന് ദുരിത്ര്ശ്വാസ് ക്യാമ്പുകളിൽ കഴിയുന്നവർ വീടുകളിലേക്ക് മടങ്ങിത്തുടങ്ങി

പ്രളയ ബാധിത പ്രദേശങ്ങളിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ അവധി റദ്ദാക്കുകയും രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ പ്രാദേശിക ഭരണകൂടത്തോട് സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെടുകയും ചെയ്തു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വെള്ളപ്പൊക്ക പ്രദേശങ്ങളിൽ ഇന്റനലെ വ്യോമനിരീക്ഷണം നടത്തി

സൌജന്യമായാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്

ആകാശവാണിയുടെയും ദൂരദർശന്റയും എല്ലാ നിലയങ്ങളും പരിപാടി പ്രക്ഷേപണം ചെയ്യും

ആകാശവാണി ഡി ഡി ന്യൂസ് ഇൻഫർമേഷൻ ആന്റ് ബ്രോഡ്കാസ്റ്റിംഗ് മീനിസ്ട്രി തുടങ്ങിയവയുടെ വെബ്സൈറ്റിലും പരിപാടി കേൾക്കാം പ്രപ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ യൂ ട്യൂബ് ചാനലിലും പരിപാടി ക്യേൾക്കാം

ശ്രാവണ പൂർണിമയോട് അനുബന്ധിച്ചുള്ള വാർഷിക പൂജ നാളെയാണ്

സ്കൂളുകളിലും ഓഫീസുകളിലും പ്രദേശവാസികൾ കുടിയേറിയതിനാൽ അടഞ്ഞു കിടക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ ഈ മേഖലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു